ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീജെ

പരിഷത്തും സഖ്യം ചേർന്നു് മത്സരിക്കും

ഏകദിനം ഇന്ന് ഡൽഹിയിൽ നടക്കും മത്സരം ഇരു ടീമുകൾക്കും നിർണായകം

കൂടുതൽ വിവരങ്ങളുമായി ഗോപകുമാർ

സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വീലയിരുത്താൻ നിയോഗിച്ച മൂന്നു പ്രത്യേക നിരീക്ഷകർ ് ഇ്ന്നലെ ന്യൂഡൽഹിയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണ്ടർ സ്ക്നിൽ അറോറ കമ്മീഷണർമാരായ അശോക് ലവാസ സുഷ്ടീൽചന്ദ്ര എന്നിവരെ കണ്ടു വിവിധ മേഖലകളിൽ നിന്നുള്ള പ്പിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥിതി വിശേഷങ്ങൾ തങ്ങൾ നിരന്തരം നിരീക്ഷിച്ചുവരികയാണെന്ന് തെരഞ്ഞെടുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു നിരീക്ഷരായ എ

ഗിൽ നൂർ മുഹമ്മദ് വിനോദ് സുത്ഷി എന്നിവർ ഉടൻ തന്നെ സംസ്ഥാനം സന്ദർശിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദേശിച്ചു സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം നടത്താനും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംബന്ധിച്ച് നിരീക്ഷരെ നിയമിക്കാനുമായിരുന്നു കമ്മീഷൻ നേരത്തെ തീരുമാനിച്ചിരുന്നത്

ജെ

പിയും ഒരുമിച്ച് മത്സരിക്കും

ജെ പി നേതാവ് രാം മാധവ് എ ജി

പ്രസിഡന്റ് അതുൽ ബോറ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് കേശബ് മഹന്ദ എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്നലെ വൈകിട്ട് ഗുവാഹത്തിയിൽ ചേർന്ന യോഗമാണ് ഇതു സംബന്ധിച്ച തീരുമാനം കൈകൊണ്ടത് നോർത്ത് ഈസ്റ്റ് ഡെമോക്രാറ്റിക് അലയൻസ് കൺവീനർ ഹിമന്ത ബിശ്വ ശർമ്മയും യോഗത്തിൽ പങ്കെടുത്തു എന്നാൽ ഈയടുത്തിടെയാണ് പൌരത്വ ഭേദഗതി ബില്ലിൽ പ്രതിഷേധിച്ച് അസമിലെ ബി ജെ

നേതൃത്വ സർക്കാരിൽ നിന്ന് മൂന്ന് അസം ഗണ പരിഷത്ത് മന്ത്രിമാർ രാജിവച്ചത്

ലോക്സ്ഫഭാ ൂതരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ഗുജറാത്തിലെ ജനങ്ങൾക്ക് പ്രവർത്തിക്കുന്നതിനായാണ് താൻ പാർട്ടിയിൽ ചേർന്മുക്കുന്ന് ശ്രീ ഹാർദിക് പട്ടേൽ പറഞ്ഞു കോൺഗ്രസ് അധ്യക്ഷ്ടൻ ർാഹുൽ ഗാന്ധിയാണ് ശ്രീ ഹാർദിക് പട്ടേലിന് പാർട്ടി അംഗത്യം നൽകിയത് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി നിർണയ നടപടികൾ അന്തിമ ഘട്ടത്തിലാണെന്ന് ബിജെപി വ്യക്തമാക്കി ഓരോ ലോക്സഭാ മണ്ഡലങ്ങളിലേയ്ക്കും മൂന്നു സ്ഥാനാർത്ഥികളുടെ പേരുകൾ പരിഗണിച്ച ശേഷം അതിൽ നിന്ന് മികച്ച സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്

ജെ

ജെ പിയുടെ ഗുജറാത്ത് തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഓം മാത്തൂർ അറിയിച്ചു

ജെ

നേതാവും കേന്ദ്രമന്ത്രിയുമായ പ്രകാശ് ജാവദേക്കർ ആരോപിച്ചു കർഷക കടം എഴുതി തള്ളുമെന്ന കോൺഗ്രസ് വാഗ്ദാനത്തിന്റെ യഥാർത്ഥ നില ബി ജെ

പുറത്തുകൊണ്ടുവരുമെന്നും ശ്രീ ജാവ്ദേക്കർ പറഞ്ഞു

വെള്ളിയാഴ്ച ഇവർ പശ്ചിമ ബംഗാളിലെത്തും പ്രശ്ന ബാധിത മേഖലകളിൽ അതിർത്തി രക്ഷാസേനയുടെ സേവനവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് അഡീഷണൽ ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് ബസു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു

യന്ത്രം പ്രവർത്തനക്ഷമമാക്കി തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ആറുലക്ഷത്തോളം ജീവനക്കാർക്ക് യന്ത്രം ഉപയോഗിക്കുന്ന വിധത്തെക്കുറിച്ച് പരിശീലനം നടത്തുകയാണ് മൂന്നു തലത്തിലുള്ള പരിശീലനമാണ് നടത്തുന്നത്

ജസ്റ്റിസുമാരായ ആർ സുബ്ബയ്യ കൃഷ്ണൻ രാമസ്വാമി എന്നിവരടങ്ങിയ ഡിവിഷൻ ബഞ്ചിന്റേതാണ് ഉത്തരവ് ഉത്തരവിന് മുന്നോടിയായി അപ്പോളോ ആശുപത്രിയുടേയും ഗവൺമെന്റിന്റേയും ജസ്റ്റിസ് ആറുമുഖസ്വാമി കമ്മീഷന്റേയും വാദം കോടതി കേട്ടിരുന്നു

എൽ

എച്ച്

എച്ച്

എൽ

പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും

നാഗർകോവിലിൽ നടക്കുന്നു് ത്തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനു ശേഷം തൃശ്ശൂർ രാമനിലയ്യത്തീലാണ് രാഹുൽ ഗാന്ധി എത്തുന്നത് നാളെ വിവിധ പരിപാട്ടീകളിൽ പങ്കെടുക്കുന്ന രാഹുൽ ഗാന്ധി കാസർകോട് കൊല്ലപ്പെട്ട് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും വീടുകൾ സന്ദർശിക്കും നാളെ വൈകിട്ട് ഡൽഹിക്ക് മടങ്ങും

ജെ പിയുടെ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് പുറത്തു വരുന്ന വാർത്തകൾ വസ്തുതാ വിരുദ്ധമാണെന്ന് ബി ജെ

മറ്റു സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് കൂടിക്കാഴ്ചകൾ നടക്കുന്നതെയുള്ളൂ ഈ സാഹചര്യത്തിൽ ഓരോ മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരാണെന്ന് വൃക്തമാക്കിയുള്ള പ്രചരണം തെറ്റാണെന്ന് സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു

ഡി എഫ് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും

വിവിധ ഘടകകക്ഷി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും

ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏപ്പിട്യേഷൻ ഡി

ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ ശേഷം മാത്രമേ ഇത്തരം വിമാനങ്ങളുടെ സർവ്വീസ് പുനരാരംഭിക്കുകയുള്ളൂ എന്ന് മന്ത്രാലയം വ്യക്തമാക്കി യാത്രക്കാരുടെ സുരക്ഷയാണ് പരമ പ്രധാനമെന്നും ഇത് ഉറപ്പുവരുത്താൻ വിമാനത്തിന്റെ സുരക്ഷ സംബന്ധിച്ച് ഇതര രാജ്യങ്ങളുമായും വിമാന കമ്പനികളുമായും ചർച്ച നടത്തി വരികയാണെന്നും വ്യോമ മന്ത്രാലയത്തിന്റെ അറിയിപ്പിൽ പറയുന്നു

സമൂഹത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്ക് സംവരണത്തിലൂടെ ഉന്നമനമാണ് കേന്ദ്ര ഗവൺമെന്റ് ലക്ഷ്യമിട്ടതെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു ഇത്തരത്തിൽ സംവരണം നൽകിയത് നീതികേടാണെന്ന് കാട്ടി ഒരുകൂട്ടം പരാതികൾ സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു

തുടർന്നാണ് ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിയത്

ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസാ മെയാണ് രണ്ടാം തവണയും ബ്രക്സിറ്റ് കരാറുമായി എത്തിയത് എന്നാൽ ഇത്തവണയും കരാറിന് അംഗീകാരം നേടാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞില്ല യൂറോപ്യൻ യൂണിയനിൽ നിന്ന് പിൻവാങ്ങുന്ന കാര്യത്തിൽ ഇന്ന് കരാർ ഇല്ലാതെ വോട്ടിംഗ് നടക്കും ഈ വോട്ടിംഗിലും ഗവൺമെന്റ് പക്ഷം പരാജയപ്പെട്ടാൽ പ്രധാനമന്ത്രിയുടെ സ്ഥാനത്തിന് തന്നെ ഭീഷണിയാണ് ഇത്തരം ഒരു സാഹചര്യമുണ്ടായാൽ പ്രധാനമന്ത്രി തന്റെ സ്ഥാനം രാജിവയ്ക്കേണ്ടി വരികയോ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ബ്രിട്ടീഷ് പിൻമാറ്റം നീട്ടിവയ്ക്കുകയോ ചെയ്യേണ്ടി വരും ഭരണപക്ഷത്തുള്ള അംഗങ്ങൾക്ക് തന്നെ കരാറിൽ എതിർപ്പുണ്ട്

ദോഹയിലാണ് ചർച്ച നടന്നത് സമാധാന ശ്രമങ്ങൾ മുന്നോട്ടുകൊണ്ടുപോകുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു ചർച്ച സമാധാനം പുലരണമെങ്കിൽ യുഎസ് പലയിടങ്ങളിലായി വിന്യസിച്ചിട്ടുള്ള സൈന്യത്തെ പിൻവലിക്കണമെന്നാണ് താലിബാന്റെ ആവശ്യം എന്നാൽ അക്രമങ്ങൾ അവസാനിപ്പിച്ചാൽ മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ എന്നാണ് യു എസ് നിലപാട്

ചർച്ചകൾ തുടരുന്നതിന്റെ ഭാഗമായി അടുത്തതവണ വാഷിംഗ്ടണിൽ കൂടിക്കാഴ്ച നടത്താനും തീരുമാനമായി അഫ്ഗാനിസ്ഥാൻ മേഖലയിൽ യുഎസ് സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നത് സംബന്ധിച്ചാണ് നിലവിലെ ചർച്ചകൾ നടക്കുന്നത്

്ഇരുട്ടീമുകളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നതിനാൽ അവ്സാന മത്സരം നിർണായകമാണ്

ഈ ഗ്രൂപ്പിൽ ശ്രീലങ്കയും നേപ്പാളുമായും ഇന്ത്യ ഏറ്റുമുട്ടുന്നുണ്ട്